കേന്ദ്ര ധനകാരൃമന്ത്രി പ്രഖ്യാപിച്ച കോവിഡ് പാക്കേജിനെ കേരള സർക്കാർ സ്വാഗതം ചെയ്തു

കൊല്ലത്ത് ക്വാറന്റെൻ ലംഘിച്ച് കടന്ന സബ് കളക്ടർ അനുപം മിശ്രയ്ക്കെതിരെ പോലീസ് കേസെടുത്തു

ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗബാധിതരുള്ള രാജ്യമായി അമേരിക്ക മാറി

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുഴുവൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി അവശ്യ സാധനങ്ങളുടെ വിതരണം സാമൂഹ്യ അകലം പാലിക്കുന്നതുൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചാകണമെന്നാണ് നിർദ്ദേശം വിതരണ ശൃംഖലയിൽ നേരിട്ട് ഉപഭോക്താക്കളുമായി ഇടപെടുന്നവർക്ക് ഇ പാസ്സ് സംവിധാനം ഏർപ്പെടുത്തുമെന്നും ആഭൃന്തര മന്ത്രാലയം അറിയിച്ചു

ഓഫീസുകൾക്കാണ് നിർദ്ദേശം നൽകിയത്

എഫ് ഒ പെൻഷൻ നൽകിവരുന്നത്

ബി ഐ

ഭവന വാഹന വായ്പാ പലിശ നിരക്കുകളിലും കുറവ് വരും നാണയപെരുപ്പ നിരക്ക് സുരക്ഷിത നിലയിലെന്ന് ആർ

ഐ

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത് വോയ്സ് രാജ്യത്ത് ഏറ്റവും കുടൂതൽ കൊറോണ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലാണ്

മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ എട്ടുവീതവും കോട്ടയത്ത് അഞ്ചും തിരുവനന്തപുരത്ത് നാലും തൃശൂർ പാലക്കാട് ജില്ലകളിൽ മൂന്നുവീതവും ഇടുക്കിയിൽ രണ്ടും ആലപ്പുഴ വയനാട് ജില്ലകളിൽ ഓരോരുത്തരും ചികിത്സയിലുണ്ട്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഇതോടെ അമേരിക്ക ചൈനയെ മറികടന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജൃത്ത് നിന്നു പുറത്തേക്കും രാജൃത്തേക്കുമുള്ള എല്ലാ തരം രാജ്യാന്തര വിമാന സർവീസുകളും നിർത്തിവച്ചിരിക്കുകയാണ് ആഭ്യന്തര സർവീസുകളും നിർത്തിയിട്ടുണ്ട്

എന്നാൽ ചരക്ക് വിമാനങ്ങൾക്ക് വിലക്കില്ല

ഗൾഫിൽ നിന്നെത്തിയ വയനാട് മാനന്തവാടി തൊണ്ടർനാട് സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്ന് രോഗിയെ മാനന്തവാടി ആശുപത്രിയിലേക്ക് മാറ്റി വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്

വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം പ്രതിനിധി സുരേഷ് എടപ്പാൾ

സംസ്ഥാനത്തും പ്രതിരോധ നടപടികൾ ഊർജിതമാണ് പിണറായി വിജയൻ ലോക്ക് ഡൌൺ സാഹചരൃം മുതലെടുത്ത് സംസ്ഥാനത്ത് വിലകൂട്ടി വിൽക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് ക്റ്റീട്ടെയിൽ വ്യാപാരികളിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് ത്രട്സമുണ്ടാവില്ല മൂന്നോ നാലോ മാസത്തേക്കുള്ള സാധനം സ്റ്റോക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു

ആധാർ നമ്പർ പരിശോധിച്ചശേഷം മറ്റ് റേഷൻ കാർഡുകളിൽ എവിടെയും ഉൾപ്പെടാത്തവർക്കാണ് ഭക്ഷ്യധാന്യം നൽകുന്നത്

കാറന്റെൻ ലംഘിച്ച് കടന്ന സബ് കളക്ടർ അനുപം മിശ്രയ്ക്കെതിരെ പോലീസ് കേസെടുത്തു

ഐസോലേഷ്യൻ ഫ്നിർദേശം ലംഘിച്ചതിന് ഏഴ് പേർക്കെതിരെയും കേസ് റജിസ്റ്റർ ച്ചെയ്തു പ് കണ്ണൂർ ലംഘനം ജാഗ്രത നിർദ്ദേശം ലംഘിച്ചതിന്റെ പേരിൽ കണ്ണൂർ ജില്ലയിൽ ഇന്നും നിരവധി പേർക്കെതിരെ നൂട്പടിയെടുത്തു ലോക്നാഥ് ബെഹ്റ ലോക്ക് ഡൌൺ പരിശോധനയ്ക്കിടെ പൊലീസുകാർ പൊതുജനങ്ങളോട് അപമര്യാദയായി പെരുമാറിയാൽ മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഉത്തരവാദികളാക്കി കർശന നടപടിയെടുക്കുമെന്ന് സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു അത്തരം സംഭവങ്ങൾ ഒരു സ്ഥലത്തും നടക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്തം ഇൻസ്പെക്ടർമാർക്കും അതിനു മുകളിലുള്ള ഓഫീസർമാർക്കും ആണെന്ന് ്അദ്ദേഹം വ്യക്തമാക്കി പാൽ വിതരണക്കാർ മരുന്നും മത്സ്യവും കൊണ്ടുപോകുന്ന വാഹനങ്ങൾ എന്നിവ പൊലീസ് തടഞ്ഞതായ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൊലീസ് മേധാവിയുടെ നിർദേശം സംസ്ഥാനത്ത് നിരത്തുകളിൽ ഡ്യൂട്ടിയിലുള്ള പൊലീസുകാർക്ക് കൃത്യസമയത്ത് ഭക്ഷണവും വെള്ളവും ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഡി ജി

ശൈലജ കോവിഡിന്റെ വൃാപനം അറിയാൻ മൂന്നാഴ്ച വേണ്ടിവരുമെന്ന് മന്ത്രി കെ

സമൂഹ വ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വരുന്ന ഒരാഴ്ച നിർണ്ണായകമാണെന്നും അവർ തിരുവനന്തപുരത്ത് പറഞ്ഞു വിദേശത്തുനിന്ന് എത്തുന്ന ചിലർ ഇപ്പോഴും നിരീക്ഷണത്തിന് തയ്യാറാവുന്നില്ലെന്നും ഇവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു

കോവിഡ് പാർപ്പിടം കൊറോണ ബാധിതരെ പാർപ്പിക്കുന്നതിന് സർക്കാർ ആശുപത്രികൾക്ക് പുറമെ മറ്റു സാധ്യത്കളും സംസ്ഥാന സർക്കാർ പ്രയോജനപ്പെടുത്തും